ഭീകരതയ്ക്കും അതിനെ പിന്തുണയ്ക്കുന്നവർക്കും എതിരെ ഫലപ്രദമായ നടപടിയെടുക്കാൻ സാർക്ക് രാഷ്ട്രങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ജെ

സ്ത്രീകൾക്ക് പ്രത്യേക ഇരിപ്പിടങ്ങളും പ്രവേശന വാതിലുകളും ഏർപ്പെടുത്തുന്ന നിയമം നിർത്തലാക്കി

പാകിസ്ഥാന്റെ പേരെടുത്ത് പറയാതെ സാർക്ക് രാഷ്ട്രങ്ങൾക്കിടയിൽ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യൻ ശ്രമങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാണ് ഭീകര പ്രവർത്തനം വഴി ഉയരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വിവിധ രംഗങ്ങളിൽ സാർക്ക് വലിയ നേട്ടം കൈവരിച്ചിട്ടു് എന്നാൽ ഇനിയും ഏറെ ദൂരം പിന്നിടാൻ ഉന്നെും പ്രധാനമന്ത്രി പ്രത്യേകം ഓർമ്മിപ്പിച്ചു

മോദി പങ്കെടുത്തിരുന്നു

തുടർന്ന് ്സ്മ്മേളനം റദ്ദാക്കുകയായിരുന്നു എല്ലാ വർഷവും ഡിസംബർ ് എട്ട് സാർക്ക് രൂപീകരണ ദിനമായി ആചരിച്ചു വരികയാണ് ന്യൂസ്ഡെസ്ക് ആകാശവാണി

ബിൽ ഈ വർഷം ആദൃം ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിലും സഭയുടെ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ബിൽ അസാധുവായി

അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ജനങ്ങൾക്ക് പൌരത്വം അനുവദിക്കാൻ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു ഹിന്ദു സിഖ് ബുദ്ധിസ്റ്റ് ജയിൻ പാർസി എന്നീ മതങ്ങളിലെ പൌരന്മാർക്കാണ് ആനുകൂല്യം ലഭിക്കുക

സി യും ഇടതു കക്ഷികളും ബില്ലിലെ വ്യവസ്ഥകളെ എതിർത്തിട്ടു് ബില്ലിനെ സഭയിൽ എതിർക്കുമെന്ന് കോൺഗ്രസ്സ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി അറിയിച്ചു

പി മാർ ബുധനാഴ്ച വരെ ലോക്സഭയിൽ ഹാജരായിരിക്കണമെന്ന് ബിജെപി പാർട്ടി എം

ഇന്ന് മുതൽ നാല് ദിവസം നിർബന്ധമായും സഭയിലുാകണമെന്ന് തൃണമൂൽ കോൺഗ്രസ്സും പാർട്ടി എം പി മാർക്ക് വിപ്പ് നൽകിയിട്ടു് കടൽക്കൊള്ള തടയുന്നതിനും കുറ്റവാളികൾക്ക് ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നതിനുമുള്ള ബിൽ വിദേശകാര്യമന്ത്രി ജയ്ശങ്കർ സഭയിൽ അപ്തൃതിപ്പിക്കും വിളനാശവും കർഷകരുടെ പ്രശ്നങ്ങളും സഭ ഇന്ന് ചിർച്ച് ചെയ്യും

പാർലമെന്റിന്റെ ഇരുസഭകളും ബില്ലിന് അംഗീകാരം നൽകുമെ പ്രത്യാശിക്കുന്നതായും അദ്ദേഹം പാർലമെന്റ് മന്ദിരത്തിനുപുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു

മാരും ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് ഫ്രിലെ ഒരംഗവും പാർലമെന്റ് വളപ്പിലെ മഹാത്മാഗാന്ധി പ്രതിമയ്ക്കു മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി

ജെ

എണ്ണത്തിലും കോൺഗ്രസ് രിലും

ജെ

ഇവിടെ ബി ജെ

പേട്ടിലും കടുത്ത മത്സരമാണ് നടക്കൂന്നത് യെല്ലാപൂർ വിജയനഗര ഗോകാക് മഹാലക്ഷ്മി ലേ ഔട്ട് ചിക്ബല്ലാപൂർ എന്നിവിടങ്ങളിൽ ബി ജെ

ജെ

യുടെ രമേഷ് ജർകിഹോലി സഹോദരൻ കോൺഗ്രസിന്റെ ലഖൻ ജർകിഹോലിയെക്കാൾ മുന്നിലാണ്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹസാരിബാഗ് ജില്ലയിലെ ബറാഹിയിലും ബൊക്കാറോയിലും പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്യും കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഹസാരിബാഗിലെ ബക്കാഗോവനിലും റാഞ്ചിയിലും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിക്കും

യിൽ ഉന്നാവോയിൽ ബലാൽസംഗൂത്തിന് ഇരയായ പെൺകുട്ടിയെ തീ വെച്ചു കൊന്ന സംഭിപ്പത്തിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഉൾപ്പെടെ ഏഴ് പോലൂീസ് ഓഫീസർമാരെ ഉത്തർപ്രദേശ് ഗവൺമെന്റ് സസ്പെൻഡ് ച്ചെി്യ്തു കൃത്യവിലോപത്തിനാണ് നടപടി

വ്യാഴാഴ്ച കോടതിയിൽ തെ്ളിവെടുക്കാൻ പോകവേയാണ് അക്രമികൾ പെൺകുട്ടിയെ തടഞ്ഞു വെച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയത്

റാച്ചാകൊ പോലീസ് കമ്മീഷണർ മഹേഷ് ഭഗവത് തലവനായിട്ടുള്ള സംഘത്തിൽ എസ്

സി

അതേസമയം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഹൈദരാബാദിൽ ഇന്നും അന്വേഷണ നടപടികൾ തുടരുകയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനു സമർപ്പിക്കാനായി ഹൈദരാബാദ് പൊലീസ് സംഘം വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി വരികയാണ്

രോഗശമനത്തിനായി പ്രാർത്ഥിച്ച എല്ലാവർക്കും അവർ ട്വിറ്ററിലൂടെ നന്ദി അറിയിച്ചു

രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗോത്ര നാടോടി കലാകാരന്മാർ ഉദ്ഘാടന ചടങ്ങിൽ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കും

നഗർ സ്റ്റേഡിയത്തിൽ സമാപിക്കും

ഇതിനായി എത്തുന്ന ഇന്ത്യൻ വിനോദസഞ്ചാര പ്രതിനിധി സംഘത്തിന് സിംഗപ്പൂരിലെ ടൂറിസം അധികൃതരുമായി ആശയ വിനിമയം നടത്താനുളള വേദിയാണ് റോഡ് ഷോ എന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

സ്ടുമൂഹിക നിയന്ത്രണങ്ങളിൽ ഇളവു വരുത്തുന്നതിന്റെയും കൂട്ടുത്ൽ ഉദാരമായ സമീപനം പിന്തുടരുന്നതിന്റെയും സ്കൂച്ചക്മായാണ് നടപടി നിലവിലുളള നിയമം റദ്ദു ചെയ്തുകൊുളള സൌദി ഗവൺമെന്റിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തോടെ പല ഒന്നാംകിട ഹോട്ടലുകളിലും ഭക്ഷണശാലകളിലും പൊതുസ്ഥലങ്ങളിലും പിന്തുടർന്നു വരുന്ന വലിംഗവിവേചനത്തിന് വിരാമമാകും

ഒമ്പതാം ദിവസമായ ഇന്നും ഇന്ത്യൻ താരങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷ നീന്തൽ മത്സരങ്ങളുടെ അവസാന ദിവസമായ ഇന്ന് ഇന്ത്യ എട്ട് വിഭാഗങ്ങളിൽ മത്സരം പൂർത്തിയാക്കും

പാർലമെന്റ് പിരിച്ചുവിടേി വരുമെന്ന് പ്രധാനമന്ത്രിയുടെ മുഖ്യ എതിരാളി ബെന്നി ഗാൻസ് ഭീഷണി മുഴക്കുന്നതിനാൽ തനിക്കൊപ്പം തെരഞ്ഞെടുപ്പിൽ നേർക്കുനേർ പോരാടാൻ ഗാൻസിനെ അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു

പുതിയ പ്രധാനമന്ത്രി നാളെ ചുമതലയേൽക്കുമെന്നാണ് സൂചന